നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് കേരളത്തിലെത്തും

വാക്സിൻ മൈത്രി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ന് രാജ്യത്ത് ഉത്പാദിപ്പിച്ച ക്ടോവിഡ് പ്രതിരോധ മരുന്ന് നാല് രാജ്യങ്ങൾക്ക് കൂട്ടി എത്തിച്ചു നൽകി

നിർത്തിവച്ചിരുന്ന സ്പെഷ്യൽ അരിവിതരണം ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് പുനരാരംഭിക്കും

സി

ഏഴാം സ്ഥാനത്തേക്ക് ഉയർന്നു

രാവിലെ ചരിത്ര പ്രസിദ്ധമായ കോട്ടമൈതാനത്ത് പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും മെട്രോമാൻ ഇ ശ്രീധരനാണ് പാലക്കാട് എൻ

കൂടിവെള്ളം കൃഷി വൃവസായം പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ചൂടുള്ള ചർച്ചയായിരിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ജില്ല കൂടിയാണ് പാലക്കാട്

നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ പാലക്കാട് സന്ദർശനം കൂടിയാണിത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സ്കൂർക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

തമിഴ്നാട്ടിലെ ധർമ്മപുരത്ത് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും പുതുച്ചേരിയിലും പൊതുയോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട് ബിജെപി അദ്ധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ന് അസമിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും

ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി ഇന്ന് കൊല്ലത്ത് എത്തും

സി ഗ്രൌണ്ട് രണ്ടിന് കൊട്ടാരക്കര ജൂബിലി മന്ദിരം മൈതാനം എന്നിവിടങ്ങളിൽ വിവിധ വേദികളിലായി പ്രിയങ്കാഗാന്ധി പ്രസംഗിക്കും

കാഴ്ചവൈകല്യമുള്ളവർ ബൂത്തിൽ ചെല്ലുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറുടെ പക്കൽ ബ്രെയിലി ലിപിയിലുള്ള ഡമ്മി ബാലറ്റ് പേപ്പർ ഉണ്ടായിരിക്കും അതിൽ സ്ഥാനാർഥികളുടെ പേരും ബ്രെയിലി ലിപിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതിലടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ മനസിലായി എന്ന് ബോധ്യമായശേഷം വോട്ടർക്ക് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പോകാം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനുള്ളിൽ ഇ വി എം മെഷീനിൽ തന്നെ വലതുവശത്തായി ബ്രെയിലി ലിപിയിൽ സീരിയൽ നമ്പർ ആലേഖനം ചെയ്തിട്ടുണ്ട്

കിഴക്ക് പടിഞ്ഞാറ് മെദിനിപൂരിലെ ഒൻപത് വീതം മണ്ഡലങ്ങൾ ബങ്കുറയിലെ എട്ട് മണ്ഡലങ്ങൾ സൌത്ത് പർഗാനയിലെ നാല് മണ്ഡലങ്ങൾ എന്നിങ്ങനെയാണ് ഏപ്രിൽ ഒന്നിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

മുഖ്യമന്ത്രി മമത ബാനർജിയും റോഡ് ഷോയിൽ സംബന്ധിക്കുന്നുണ്ട്

നിരവധി പത്രപ്രവർത്തകരും മത്സര രംഗത്തുണ്ട് ഇന്ന് ധാരാളം തെരഞ്ഞെടുപ്പ് റാലികളും വിവിധ മണ്ഡലങ്ങളിലായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

മഹാരാഷ്ട്ര കർണ്ണാടക പഞ്ചാബ് മധ്യപ്രദേശ് ഗുജറാത്ത് കേരളം തമിഴ്നാട് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രതിദിന കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്

ഒരു റിപ്പോർട്ട്

ഫിജി സിംബാബ്വെ നൈജർ പരാഗ്വേ എന്നീ രാജ്യങ്ങൾക്കാണ് ഇന്തൃ കോവിഡ് വാക്സിൻ എത്തിച്ചത് കോവിഡ് പ്രതിരോധ മരുന്ന് എത്തിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുന്നതായി ഫിജി പ്രധാനമന്ത്രി ഫ്രാങ്ക് ബൈനിമാരമ ട്വീറ്റ് ചെയ്തു

ഒരു ലക്ഷം ഡോസ് വാക്സിൻ എത്തിച്ച് ന്റൽകിയതിന് പരാഗ്വേ പ്രസിഡന്റ് മാരിറ്റോ അബ്ദോയും ഇന്ത്യയ്ക്ക് നന്ദി പറഞ്ഞു

വാക്സിൻ മൈത്രി പദ്ധതി പ്രകാരം ഇതുവരെ എഴുപ്പതിലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ കോവിഡ് പ്രതിരോധ മരുന്ന് എത്തിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

അതേസമയം ഏപ്രിൽ മാസത്തെ ഭക്ഷ്യകിറ്റ് വിതരണം നാളെ മുതൽ പുനരാരംഭിക്കും

അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഖനിയുമായി ഇന്നലെ ശ്രീ

കൊൽക്കത്തയിലെ സിബിഐ ഓഫീസിൽ രാവിലെ ഹാജരാകാനാണ് ഇയാളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ തൃണമൂൽ കോൺഗ്രസ് എം പി അഭിഷേക് ബാനർജിയുടെ ഭാര്യാ സഹോദരി മനേകാ ഗംഭീറിനെ സിബ്ബിഐ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദൃം ചെയ്തിരുന്നു

വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവരിൽ നിന്നും ലഭിച്ച അഭിപ്രായങ്ങൾ കൂടി പുതിയ പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ അറിയിച്ചു പരീക്ഷക്കാലത്തെ പിരിമുറുക്കം ഒഴിവാക്കുന്നതിനുള്ള മാർഗ്ഗുങ്ങളാണ് പുസ്തകത്തിലുള്ളത്

ജനാധിപതൃ ഭരണകൂടം നിലവിൽ വരുംവരെ കരാർ മരവിപ്പിച്ച് നിർത്താനാണ് അമേരിക്കയുടെ നീക്കം

സി പുരുഷ ക്രിക്കറ്റ് ലോക കപ്പ് സൂപ്പർ ലീഗ് പട്ടികയിൽ ഇന്തൃ ഏഴാം സ്ഥാനത്തേക്ക് ഉയർന്നു